എം ശബരിമലയിൽ ദർശനത്തിനെത്തിയ രണ്ട് യുവതികളെ പ്രതി ഷേധത്തെതുടർന്ന് പൊലീസ് തിരിച്ചിറക്കി ശബരിമലയിലെ സമാധാനം തകർക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കില്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ

മുഖ്യമന്ത്രിയുടെ ഓഫീസും എ

ജി സെന്ററും ചേർന്ന് ഹിന്ദുമത വിശ്വാസത്തെയും ശബരിമലയെയും തകർക്കാൻ ആസൂത്രിതശ്രമം നടത്തുകയാണെന്ന് ബി

പി സംസ്ഥാന പ്രസിഡണ്ട് പി

ശ്രീധരൻപിള്ള പിരിച്ചുവിട്ട എംപാനൽ കണ്ടക്ടർമാരുടെ ലോങ്മാർച്ച് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും ഇന്ന് കെ

ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ക്രൈസ്തവ ദേവാലയങ്ങളും വീടുകളും അവസാനഘട്ട ഒരുക്കത്തിൽ ശബരിമലയിൽ രാവിലെ ദർശനത്തിനെത്തിയ രണ്ട് യുവതി കളെ പ്രതിഷേധത്തെ തുടർന്ന് പൊലീസ് തിരിച്ചിറക്കി ദർശനം നടത്തുമെന്ന് ഉറച്ച നിലപാടിലെത്തിയ യുവതികളെ പ്രതിഷേധം കണക്കിലെടുത്ത് നിർബന്ധിച്ച് തിരിച്ചിറക്കുകയായിരുന്നു മല പ്പുറം അങ്ങാടിപ്പുറം സ്വദേശി കനകദുർഗ്ഗ കോഴിക്കോട് കൊയി ലാണ്ടി സ്വദേശി ബിന്ദു എന്നിവരാണ് മരക്കൂട്ടത്തുവരെ എത്തിയ ശേഷം മടങ്ങിയത് സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ആംബുലൻസിലാണ് ഇവരെ തിരിച്ചിറക്കിയത് ശബരിമലയിലെ സമാധാനം തകർക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കില്ലെന്ന് മന്ത്രി ഇ

താലി ബാൻ ഭീകരവാദികളെപ്പോലെയാണ് ശബരിമലയിൽ ചില പ്രതി ഷേധക്കാർ പെരുമാറുന്നത് ഗവൺമെന്റും നിരീക്ഷണ സമിതിയും തമ്മിൽ അഭിപ്രായവൃത്യാസമില്ലെന്നും പൊലീസിന്റെയും ഗവൺമെന്റിന്റെയും നടപടികൾ ശരിയായ ദിശയിലാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു യുവതികൾക്ക് ശബരിമല ദർശനം നടത്താൻ ബലപ്രയോഗം വേണ്ടെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയിൽ സംഘർഷം അനുവദിക്കാനാവില്ല ശബരിമലയിലെത്തിയ യുവതികൾ പൊലീസ് സംരക്ഷണം ആവ ശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ കേരളത്തിന് അപമാനമാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നി ത്തല പറഞ്ഞു ശാന്തത തകർത്തത് പൊലീസിന്റെ നടപടികളാ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ അവഗണിക്കുന്ന ഒരു നില ണ് പാടും ശബരിമലയിൽ അനുവദിക്കില്ലെന്ന് അദ്ദേഹം തിരുവനന്ത പുരത്ത് പറഞ്ഞു

മണ്ഡല മകരവിളക്ക് കാലത്ത് ഗവൺമെന്റ് ഇത്തരം നാടകങ്ങൾ അവസാനിപ്പിക്കണമെന്നും പ്രായോഗിക ബൂദ്ധിയോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറ ഞ്ഞു ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ബോധപൂർവ മായ നീക്കങ്ങളാണ് നടക്കുന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി ശബരിമലയിൽ സുപ്രീംകോടതിവിധി നടപ്പാക്കാനാണ് ശ്രമിച്ചതെന്ന് ഡി ജി

സംഘർഷമുണ്ടാക്കാൻ ഒരു ശ്രമവും പൊലീസിന്റെ ഭാഗത്തുനി ന്നുണ്ടായിട്ടില്ലെന്നും തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും ഡി ജി പി തിരുവനന്തപുരത്ത് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസും എ

ജി സെന്ററും ചേർന്ന് ഹിന്ദുമത വിശ്വാസത്തെയും ശബരിമലയെയും തകർക്കാൻ ആസൂ ത്രിത ശ്രമം നടത്തുകയാണെന്ന് ബി

പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻ പിള്ള പറഞ്ഞു

ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയ്ക്കും പ്രൈവറ്റ് സെക്രട്ടറിയ്ക്കും പങ്കുള്ളതായി സംശയിക്കേണ്ടിയിരി ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ സംഭവങ്ങ ളെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയോ സി ബി ഐ യോ അന്വേഷണം നടത്തണമെന്നും ഇതിന് മുഖ്യമന്ത്രി മുൻകൈയെടു ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബി

പി സമരപ്പന്തലിൽ സംസാരിക്കുകയായിരുന്നു ശ്രീധരൻപി ള്ള ശബരിമലയിൽ ദർശനം നടത്താൻ മലകയറിയ യുവതികൾ മാവോയിസ്റ്റുകളാണെന്നും ഇത്തരക്കാർക്ക് ഗവൺമെന്റ് സംര ക്ഷണം നൽകുന്നത് വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്നും ബി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കുറ്റ പ്പെടുത്തി ചില മാധ്യമങ്ങൾ മനപൂർവ്വം ശബരിമലയെ കളങ്കപ്പെ ടുത്താൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറ ഞ്ഞു ശബരിമലയിലെ യുവതിപ്രവേശം ഗവൺമെന്റ് ആഗ്രഹിക്കു ന്നില്ലെന്നാണ് പൊലീസ് നടപടിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് മനിതി സംഘം ഇക്കാര്യത്തിൽ ഗവൺമെന്റിന് ആർ

എസ് അജണ്ടയാണെന്നും നാളെ കൂടുതൽ സംഘം ശബരിമലയിൽ ദർശനത്തിനെത്തുമെന്നും മനിതി സംഘം നേതാക്കൾ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ഹൈക്കോടതി നിരീക്ഷണസമിതി വൈകിട്ട് സന്നിധാനത്തെ ത്തും ഇന്നലെയും ഇന്നും നടന്ന സംഭവങ്ങൾ സമിതി ഹൈക്കോ ടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും യുവതി പ്രവേശം സംബന്ധിച്ച വിഷയങ്ങളടക്കം സമിതി കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകും മണ്ഡലപൂജയ്ക്ക് മൂന്നുദിവസം ബാക്കിനിൽക്കെ വൻ തീർത്ഥാടക തിരക്കാണ് ശബരിമലയിൽ പുലർച്ചെ മുതൽ അനു ഭവപ്പെടുന്നത്

ഉച്ചപൂജയോടനുബന്ധിച്ച് കലശാഭിഷേകവും കളഭാ ഭിഷേകവും പൂർത്തിയായി വരും ദിവസങ്ങളിൽ സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് വർധി ക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ദേവസ്ഥംബോർഡും വിവി ധ വകുപ്പുകളും തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ ക്രമീകര ണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് തങ്കയങ്കി രഥഘോഷയാത്ര രണ്ടാംദിവസത്തെ പ്രയാണം രാവിലെ ഓമല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു ഇന്നലെ പുലർച്ചെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കയങ്കിയു മായി ഘോഷയാത്ര ആരംഭിച്ചത് മറ്റന്നാൾ ഉച്ചയോടെ ഘോഷ യാത്ര പമ്പയിലെത്തും സന്ധ്യോടെ സന്നിധാനത്തെത്തിക്കുന്ന തങ്കയങ്കി ചാർത്തിയായിരിക്കും ദീപാരാധന

പിരിച്ചുവിട്ട എംപാനൽ കണ്ടക്ടർമാരുടെ ലോംഗ്മാർച്ച് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും വ്യാഴാഴ്ച ആലപ്പുഴയിൽ നിന്നാ രംഭിച്ചു ലോംഗ്മാർച്ചിൽ രണ്ടായിരത്തിലേറെ എംപാനൽ കണ്ടക്ടർമാർ പങ്കെടുക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയശേഷം മുഖ്യമന്ത്രിയെ കണ്ട് പിരിച്ചുവിടലിനെതിരെ അവർ നിവേദനം നൽകും എംപാനൽ ജീവനക്കാരുടെ പിരിച്ചുവിടലിനെ തുടർന്ന് ആവ ശൃത്തിന് കണ്ടക്ടർമാരില്ലാത്തതിനാൽ കെ എസ്

സിയിൽ പ്രതിസന്ധി തുടരുകയാണ്

എസ്

മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി സ്പീക്കർ സുമിത്ര മഹാജൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ബി ജെ പി അധ്യ ക്ഷൻ അമിത് ഷാ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ക്രൈസ്തവ ദേവാലയങ്ങളും വീടുകളും അവസാനഘട്ട ഒരുക്കത്തിൽ

ഇന്ന് ദേശീയ ഉപഭോക്തൃദിനം

ഉപഭോക്തൃ പരാതികളുടെ സമയബന്ധിത തീർപ്പാക്കൽ എന്ന താണ് ഈ വർഷത്തെ സന്ദേശം

എം നേതാവ് നിരുപംസെൻ അന്തരിച്ചു

മുൻ പൊളിറ്റ്ബ്യൂറോ അംഗവും പശ്ചിമബംഗാൾ മുൻ മന്ത്രിയുമായിരുന്നു ഇന്ന് പുലർച്ചെ കൊൽക്കത്തയിലായി രുന്നു അന്ത്യം സംസ്കാരം ബുധനാഴ്ച പ്രസിദ്ധമായ കണ്ണൂർ കുഞ്ഞിമംഗലം മുച്ചിലോട്ട് ഭഗ വതിക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് തുടക്കമായി

വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും പാലക്കാട് ജില്ലയിലെ മണ്ണൂർ കേരളശേരി മങ്കര സമഗ്ര കുടി വെള്ള പദ്ധതി നിർമ്മാണം മണ്ണൂരിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു

കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ അനിശ്ചിതകാല പണി മുടക്ക് ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രി ഡോക്ടർ തോമസ് ഐസ ക്കിന്റെ സാന്നിധ്യത്തിൽ മറ്റന്നാൾ തിരുവനന്തപുരത്ത് വീണ്ടും ചർച്ച നടക്കും ഇന്നലെ വിളിച്ച ചർച്ചയിൽ ബാങ്ക് ചെയർമാൻ വിട്ടുനിന്നതിനെ തുടർന്നാണ് ചർച്ച മാറ്റിയത്

കണ്ണൂർ വിമാനത്താവളത്തിലെ കാർഗോ കോംപ്തക്സിന് അൽപ്പസമയത്തിനകം മന്ത്രി കെ കെ ശൈലജ തറക്കല്ലിടും

വനിതാമതിലിന്റെ പ്രചരാണാർത്ഥം കണ്ണൂരിൽ ഇന്ന് നവോ ത്ഥാന ദീപം തെളിയിക്കും വൈകിട്ട് ടൌൺസ്ക്വയറിൽ മന്ത്രി കെ കെ ശൈലജ പരിപാടി ഉദ്ഘാടനം ചെയ്യും പ്രഥമ ശുശ്രൂഷാരംഗത്ത് ജനങ്ങളെ സ്വയംപര്യാപ്തരാക്കി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഫസ്റ്റ് എയ്ഡ് പഞ്ചായത്താകാൻ മല പ്പുറം ജില്ലയിലെ ചേലേമ്പ്ര ഒരുങ്ങുന്നു അത്യാഹിതങ്ങളിലും അപ കടങ്ങളിലും പെടുന്നവർക്ക് ആശുപത്രിയിൽ എത്തുംമുമ്പ് പ്രഥമ ശുശ്രൂഷ നൽകാൻ ജനങ്ങളെ പര്യാപ്തമാക്കാനാണ് പദ്ധതി ലക്ഷ്യ മിടുന്നത് പ്രീമിയർ ബാഡ്മിന്റൺ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് പൂനെ അവധ് വാരിയേഴ്സിനെ നേരിടും വൈകിട്ട് മുംബൈയിലാണ് മത്സരം

മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ ആയിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു അനക് ക്രാക്കത്തൂവ അഗ്നി പർവ്വത ദ്വീപിലുണ്ടായ പൊട്ടിത്തെറിയും കടലിനടിയിലുണ്ടായ മാറ്റങ്ങളുമാണ് സുനാമിക്ക് കാരണമെന്ന് കരുതുന്നു നിരവധി ഹോട്ടലുകളും വീടുകളും തകർന്നു അടുത്തിടെ പാലുവിലും സുലവേസി ദ്വീപിലും ഉണ്ടായ ഭൂചലനത്തിലും സുനാ മിയിലും ആയിരത്തിലധികംപേർ മരിച്ചിരുന്നു